കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു ജമ്മു കാശ്മീരിന്റെ ലിഡാക്ക് ജമ്മു കാശ്മീർ എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണപ്രദേ ശങ്ങളായി വിഭജിക്കും

പ്രവർത്തകൻ മരിച്ച സ്ംഭവം ഡിജിപി ഇന്ന് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകും

സംയുക്ത വാഹന പരിശോധനകൾക്ക് തുടക്കമായി

റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം തുടരുന്നു

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇതു സംബന്ധിച്ച പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിച്ചത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉത്തരവിൽ ഒപ്പുവച്ചു ഇതോടെ കശ്മീരിന് പ്രത്യേക പദവി ഇല്ലാതായി ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ധ്യ ക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരു മാനം എടുത്തത്

രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ വൻ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മുമ്പ് കാശ്മീ രിലെ സാഹചര്യങ്ങൾ ചർച്ച് ചെയ്യണമെന്ന് പ്രതിപക്ഷനേതാവ് ഗുലാം നബി ആസാദ് ആവശ്യപ്പെട്ടു എന്നാൽ കശ്മീർ വിഷയത്തെക്കുറിച്ച് എല്ലാ കക്ഷികളുമായും ചർച്ച നടത്താൻ തയ്യാറാണെന്ന് കേന്ദ്രആഭ്യന്തര മന്ത്രി അമിത് ഷാ പറഞ്ഞു

മലപ്പുറം ചേലേമ്പ്രയെ രാജ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്തായുള്ള പ്രഖ്യാപനവും വള്ളിക്കുന്ന് അത്താണിക്കൽ പിഎച്ച് സിയെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയതിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി എമർജൻസി സംവിധാനം ശക്തിപ്പെടുത്താൻ ഡൽഹി എയിംസുമായി സഹകരിച്ച് നടപടി തുടങ്ങി

പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ആശ്രയ ഭക്ഷണ കിറ്റ് വിതരണവും നിർവഹിക്കുകയായിരുന്നു അവർ അങ്കണവാടികളിൽ കൂടുതൽ സൌകര്യങ്ങളൊരുക്കി മിക്കച്ച ആരോഗ്യം ഭക്ഷണം വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി

ബഷീർ വാഹനാപകടത്തിൽ മരണമടഞ്ഞ സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഇന്ന് റിപ്പോർട്ട് നൽകും

കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന്റെ അറസ്റ്റും ആശുപത്രിവാസവും ജയിലിലെ പരിശോധനാ റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ളതായിരിക്കും റിപ്പോർട്ട്

ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത് ആകാശവാണിയോട്

പൻവേൽ റോഹ സ്റ്റേഷനുകൾക്കിട യിലെ ജീതേ സ്റ്റേഷനു സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത് കേരള ത്തിലൂടെ മുംബൈയിലേക്ക് പോകുന്ന മൂന്ന് ട്രെയിനുകൾ റദ്ദാക്കി

അതിനിടെ ശക്തമായി പെയ്യുന്ന മഴയിൽ മുംബൈയിൽ ജന ജീവിതം ദുസ്സഹമായി

പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്

ഇരിട്ടി വീരാജ് പേട്ട റോഡിൽ മാക്കൂട്ടത്തിനടുത്ത് പെരുമ്പാടിക്കടുത്താണ് ഇന്ന് പുലർച്ചെ ഒന്നരയോടെ മണ്ണിടിഞ്ഞത് ഗതാഗതം മാനന്തവാടി വഴി തിരിച്ചുവിട്ടു

കേന്ദ്ര സംസ്ഥാന ഗവർണമെന്റുകളുടെ സംയുക്ത പദ്ധതി ആദ്യ ഘട്ടത്തിൽ മന്ത്രി കെ

സംരക്ഷണയജ്ഞത്തിന്റെ ഭാഗമായി ജൈവ വൈവിധൃ ഉദ്യാന നിർമാണത്തിൽ സംസ്ഥാനതലത്തിലെ മികച്ച സ്കൂളായി ഈ വിദ്യാലയം തെരഞ്ഞെടുക്ക പ്പെട്ടിരുന്നു ആകാശവാണി ഇടൂക്കി പ്രതിനിധി ആന്റണി മൂനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട്

സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ